റഷ്യയുമായി കൂടുതൽ മേഖലകളിൽ സഹകരിച്ചു പ്രവർത്തിക്കാൻ ധാരണയായതായി കേന്ദ്രവിദേശകാരൃമന്ത്രി സുഷമ സ്വരാജ്

സ്കൂൾകുട്ടികൾ ജവാൻമാർ ആത്മീയ നേതാക്കൾ ക്ഷീര കർഷകസഹകരണസംഘങ്ങളിലെ അംഗങ്ങൾ തദ്ദേശ ഭരണസ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവരുമായിട്ടായിരിക്കും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുക ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടുവരെയാണ് പരിപാടി നടക്കുന്നത്

ശുചിത്വത്തിന്റെ ആവശ്യകതയെകുറിച്ച് ജനങ്ങളെ ബോധവത്ക്കരിക്കുകയും വൃത്തിയുള്ള സമൂഹം എന്ന ജനകീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നതും പരിപാടിയുടെ ലക്ഷ്യങ്ങളാണ്

പരിപാടിയുടെ ഭാഗമാകാനും ശ്രീ

സ്വച്ഛതാ ഗ്രാമസഭകൾ സേവാദിവൻ് റെയിൽവേ സ്വച്ഛതാദിവസ് അന്ത്യോദയ ദിവസ് എന്നിവയും പ്രചരണ പരിപാടിയോട് അനുബന്ധിച്ച് നടത്തും

ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും അശരണർക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പ് വരുത്താൻ ഗവൺമെന്റ് നിരവധി നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സുപ്രീംകോടതി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തത് അനാവശ്യമായാണെന്ന് നിരീക്ഷിച്ചു കോടതി നഷ്ടപരിഹാരമായി നൽകേണ്ട തുക അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നും ഉത്തരവിട്ടു

കേന്ദ്രധനകാര്യ സഹമന്ത്രി ശിവപ്രതാപ് ശുക്തയും മൂന്ന് രാജ്യസഭാ എംപിമാരും ഒരു ലോകസഭ അംഗവും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് സെർബിയ മാൾട്ട റൊമേനിയ എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് ഏഴ് ദിവസത്തെ സന്ദർശനവേളയിൽ കൃഷി വിനോദസഞ്ച്ദ്രം എന്നീ മേഖലകളിലെ വിവിധ കരാറുകളിൽ ഒപ്പിടും ആദ്യം സെർബിയ സന്ദർശിക്കുന്ന് അദ്ദേഹം രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും മാൾട്ടയിലെത്തുന്ന ഉപ്പൽഷ്ട്രപതി ഇരു രാജ്യങ്ങൾക്കും പൊതുതാൽപര്യമുള്ള പ്പ്പിഷയങ്ങൾ ചർച്ചചെയ്യും

റഷ്യൻ ഉപപ്രധാനമന്ത്രി യൂറിബോറിസോവുമായി നടത്തിയ ചർച്ചയിൽ കൂടുതൽ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായും മന്ത്രി അറിയിച്ചു ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ യോഗത്തിൽ ഇരു നേതാക്കളും പങ്കെടുത്തു

കഴിഞ്ഞ നാല് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഭക്ഷ്യവസ്തുക്കളുടെ പ്രത്യേകിച്ച് പച്ചക്കറികളുടെ വിലയിലുണ്ടായ കുറവാണിതിന് കാരണം

കർണാടകാ ലോ സൊജസ്റ്റിയുടെയും രാജ് ലഖംഗൌഡ ലോ കോളേജിന്റെയും പ്ലാറ്റിന്റ് ജൂബിലി ആഘോഷ ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും തുടർന്ന് അദ്ദേഹം നാളെ തന്നെ ഡൽഹിക്ക് മടങ്ങും

ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ഹീന്ദി ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിന് ഒരു വിദേശഭാഷ കൂടാതെ കഴിയില്ല എന്ന സാഹചര്യമാണുള്ളത് ഇത് കണക്കിലെടുത്ത് ഹിന്ദിയെ മറ്റു പ്രാദേശിക ഭാഷകളുമായി ബന്ധപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യത്തിൽ ടൂറിസ്പ് സ്മാധ്യതകൾ വികസിപ്പിക്കുകയും സാംസ്കാരിക വൈവിധ്യുകൾ ലോകത്തെ അറിയിക്കുകയുമാണ് പരിപാടിയിലൂടെ ലക്ഷ്യിമിടുന്നതെന്ന് ടൂറിസം സെക്രട്ടറി രശ്മി വർമ്മ ഡൽഹിയിൽ അറിയിച്ചു സ്വന്തം നാട്ടിലേക്ക് നോക്കൂ എല്ലാവർക്കും വിനോദസഞ്ചാരം വിനോദസഞ്ചാര നടത്തിപ്പ് എന്നീ മൂന്നു ഘടകങ്ങൾ സമന്വയിപ്പിച്ചാണ് പരിപാടി നടത്തുന്നത്

ഇന്ത്യൻ ടൂറിസം ഫെഡറേഷനുകളുമായും സംസ്ഥാന ഗവൺമെന്റുകളുമായും

മുപ്പതോളം യാത്രക്കാരുമായി കേശ്വനിൽ നിന്ന് കിഷ്ത്വാറിലേക്ക് പോകുകയായിരുന്നു മിനി ബസ്

ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിജയ എന്ന കപ്പലിൽ അത്യാധുനിക വിനിമയ ദിശാസൂചികാ സാമഗ്രികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒഡീഷ പശ്ചിമബംഗാൾ തീരങ്ങളിൽ നിരീക്ഷണം നടത്തുകയാണ് കപ്പലിന്റെ ദൌത്യം

ആഗോള സാങ്കേതിക വിദ്യക്ക് അനുസൃതമായി ദൂരദർശ്രതീലും മാറ്റങ്ങൾ വരുത്തണമെന്ന് വാർത്താവിതരണ സെക്രിട്ടുറി അമിത് ഖരെ പറഞ്ഞു

ആറു ജില്ലകളിൽ പ്രളയക്കെടുതികൾ തുടരുകയാണ് ജലാശയങ്ങളിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ബോട്ടു സർവ്വീസുകളും നിറുത്തിവെച്ചു

ഇന്ത്യുൾപ്പെടെ ആറ് ടീമുകളാണ് മത്സരത്തിനുള്ളത് രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ശിഖർ ധവാനാണ് ഉപനായകൻ വിരാട് കോഹ്ലിയ്ക്ക് വിശ്രമമനുവദിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്കു പുറമെ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് എന്നിവരാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്ന മറ്റ് ടീമുകൾ